അതിർത്തിയിലെ ഫിംഗർ ഫോറിൽ നിന്നും പാങ്ഗോങ് സോ ഡീപസാംഗ് പ്രദേശം എന്നിവിടങ്ങളിൽ നിന്നും പൂർണ്ണമായി സൈന്യത്തെ പിൻവലിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ഇന്നത്തെ ചർച്ചയെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് യിയും തമ്മിൽ ഈ മാസം അഞ്ചിന് നടന്ന സംഭാഷണത്തിന് ശേഷമുള്ള ചർച്ചയാണ് ഇന്നത്തേത് മേഖലയിലെ സമാധാനം നിലനിർത്താൻ ഇരു രാജ്യങ്ങളും സേനാ പിന്മാറ്റത്തിന് കഴിഞ്ഞ ചർച്ചയിൽ ധാരണയായിരുന്നു

ഇന്ത്യൻ സൈന്യവും ഈ പ്രദേശങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിരുന്നു

ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ അദ്ധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഓൺഗ്ലൈനായാണ് ഉദ്ഘാടനം നിർവ്വഹിച്ചത്

സി

ഇദ്ദേഹത്തിന്റെ അനുകൂലികളായ വിശ്വേന്ദ്ര സിംഗ് രമേശ് മീണ എന്നിവരെയും മന്ത്രി സ്ഥാനത്തു നിന്ന് നീക്കി ഇന്ന് നടന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനമായത് പുതിയ സംസ്ഥാന അദ്ധ്യക്ഷനായി ഗോവിന്ദസിംഗ് ദോത്സാരയെ നിയമിച്ചതായി മുതിർന്ന കോൺഗ്രസ് നേതാവായ രൺദീപ് സൂർജേവാല പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രി അശോക് ഗഹ്ലോട്ടും മുതിർന്ന നേതാക്കളും രാജ്ഭവനിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി

മുഖ്യമന്ത്രി വിളിച്ചുചേർത്ത മന്ത്രിസഭാ യോഗം അൽപ്പസമയത്തിനുളളിൽ ആരംഭിക്കും

മഹാരാഷ്ട്രയിൽ നിലവിൽ ചികിത്സയിലുളളത് ഒരൂല്ലിക്ഷത്തിലധികം പേരാണ്

സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന ദിവസമാണ് സംസ്ഥാനം കോവിഡ് വ്യാപനത്തിന്റെ രൂക്ഷതയിലേക്ക് പോവുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സമ്പർക്കത്തിലൂടെ രോഗവൃാപനം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ജാഗ്രത കുറവാണെന്നും അദ്ദേഹം വ്യക്തമാക്കി

എഫ് ജവാനും രണ്ട് ഐ ടി

രണ്ട് സി ഐ എസ്

പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇറാൻ ഇറാഖ് എന്നിവിടങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്

ഐ

അതേസമയം കേസുമായി ബന്ധപ്പെട്ട് മുൻ ഐ ടി സെക്രട്ടറി എം

തിരുവനന്തപുരം കസ്റ്റംസ് ഓഫീസിലെത്തിയ ശിവശങ്കറിനെ ഡി

ഐ കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ് ചോദ്യം ചെയ്യുന്നത്

ഇന്ത്യയുടെ പരമ്പരാഗത സമഗ്ര ആരോഗ്യ സംവിധാനമായ ആയുർവേദവും യോഗയും ഓസ്ട്രേലിയൻ ജനതയ്ക്കിടയിലെ അമിതവണ്ണവും അനുബന്ധരോഗങ്ങളും കുറയ്ക്കുന്നതിന് സഹായിക്കും